ടർക്കിയിൽ നടന്ന അന്താരാഷ്ട്ര ഗൂസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ബജ്റംഗ് പൂനിയയ്ക്ക് രണ്ടാം തവണയും സ്വർണം

സി സേവാ കേന്ദ്രങ്ങളിലോ അസം ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലോ പരിശോധിക്കാവുന്നതാണ്

രാജ്യം നേരിടുന്ന സൂരക്ഷാ ഭീഷണികളും തയ്യാറെടുപ്പുകളും ്യോഗം അവലോകനം ചെയ്യും മൂന്ന് സേനകളിലേയും പ്രതിരോധ മിന്താലയത്തിലേയും ഉന്നതർ പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ സർയുക്ത പ്രശ്നങ്ങൾ ചർച്ചയാകും

പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതിരോധസഹമന്ത്രി സുഭാഷ് രാംറാവോ ഭാംറെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ കര നാവിക വ്യോമ സേനാ തലവൻമാർ എന്നിവരും സേനകളിലേയും മന്ത്രാലയത്തിലേയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും

കെ അധ്യക്ഷനും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കരുണാനിധിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു കരുണാനിധിയുടെ ആരോഗ്യനില സാധാരണ നിലയിൽ ആക്കാൻ ശ്രമിക്കുകയാണെന്ന് കാവേരി ആശുപത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

ആശുപത്രി പരിസരത്തും അദ്ദേഹത്തിന്റെ വീട്ടിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് മുതിർന്ന പാർട്ടി നേതാക്കന്മാരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്

പിന്തുണയില്ലാതെ ഇത്തവണ ഇന്തൃയിൽ നിന്നും ഹജ്ജിന് പോകുന്നുണ്ട് സബ്സിഡിയില്ലാത്ത ആദ്യ ഹജ്ജ് തീർത്ഥ യാത്രയാണിതെന്ന് കേന്ദ്രമന്ത്രി നഖ്വി അറിയിച്ചു

കേസിൽ മൂന്ന് പാകിസ്ഥാനികളെ പ്പോലീസ് അറസ്റ്റ് ചെയ്തു മദ്ധ്യപ്രദേശുകാരൻ സൻജീവ് ആണ് മലേഷ്യൻ റോയൽ പോലീസിന്റെ സഹായത്തോടെ ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ടതെന്ന് വിദേശകാരൃമന്ത്രി സുഷമാ സ്വരാജ് ട്ചീറ്റ് ചെയ്തു സൻജീവിന്റെ മോചനത്തിനായി പ്രവർത്തിച്ച മലേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ മൃദുൽ കുമാറും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അഭിനന്ദനമർഹിക്കുന്നതായി ശ്രീമതി സുഷമ സ്വരാജ് അഭിപ്രായപ്പെട്ടു

പ്രതികൂല സാഹചര്യത്തെ നേരിടുന്നതിനായി ജാഗരൂകരായിരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അതേസമയം യമുനയുടെ പാലത്തിന് കുറുകെയുള്ള ഗതാഗതം ഡൽഹിയിൽ പഴയ നിരോധിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി വീണാമുകുന്ദൻ

ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളും കുളമാവ് അണക്കെട്ടും ചേർന്നതാണ് ജലസംഭരണി

ഡാം തുറക്കേണ്ട സാഹചരൃത്തിൽ സ്വീകരിക്കേണ്ട രക്ഷാപ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും സംബന്ധിച്ച് ഇടുക്കി താലൂക്ക് ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അവലോകനയോഗം ഇന്നലെ ചേർന്നു

ഒറ്റവിള കൃഷിയേക്കാൾ പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഉൾപ്പെടെ വൈവിദ്ധ്യമാർന്ന വിളകൾ സംയുക്തമായി കൃഷിചെയ്യുന്ന രീതി അവലംബിക്കണമെന്ന് ചെന്നൈയിലെ എം

ബാക്കിയുള്ള ഏഴുപേരുടെ കാര്യം പ്രത്യേകമായി പരിഗണിക്കുമെന്നും ശ്രീ

എഫ് ജവാൻ കൊല്ലപ്പെട്ടു

ഇതോടെ ലണ്ടനിൽ നടക്കുന്ന ലോകകപ്പ് മൽസരത്തിൽ നോക്ക് ഔട്ട് വിഭാഗത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞും ഇംഗ്ലണ്ട് അയർലന്റ് മൽസരഫലം കൂടി ലഭ്യമാകുന്നതിന് അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ അന്തിമ വിധി

തുടർച്ചയായി രണ്ടാം തവണയാണ് ബജ്രംഗ് പൂനിയ അന്താരാഷ്ട്ര ഗുസ്തി മത്സരത്തിൽ സ്വർണം നേടുന്നത് സന്ദീപ് തോമറിന് വെള്ളി ലഭിച്ചു

നെഞ്ചുവേദനയെ തുടർന്ന് ഇസ്താമബാദിലുള്ള പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിലെ കാർഡിയാക് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള നവാസ് ഷെരീഫിന്റെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് ആശുപത്രി വക്താവ് വസിം ഖാജ അറിയിച്ചു

ദീർഘകാലമായി പ്രധാനമന്ത്രി ഹുൻസൻ ആണ് ഭരണം നടിത്തുന്നത്

പി പാർട്ടി വക്താവ് സോക് ഈസാൻ പറഞ്ഞു

സൈനികാഭ്യാസമേളയിലെ രണ്ട് പ്രധാന മൽസരങ്ങളായ ടാങ്ക് ബിയാത്ലോണിലും എൽബ്രസ് റിംഗ് കോമ്പറ്റീഷനിലും ഇന്ത്യൻ സൈന്യം പങ്കെടുക്കുന്നുണ്ട്